ത സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയായ മൂന്ന് മത്സ്യബന്ധന തുറമുഖങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും

നാരായണസ്വാമി ഇന്ന് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടും

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലും പശ്ചിമബംഗാളിലും സന്ദർശനം നടത്തും അസമിൽ ധെമാജി ജില്ലയിലെ എണ്ണ പ്രകൃതിവാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിൽ നിരവധി റെയിൽവെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ബംഗാളിന്റെ സമഗ്ര വികസനമാണ് കേന്ദ്രഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രംഭ ഐഐടി ഖരഗ്പൂരിലെ ഡോ ശ്യാമപ്രസാദ് മുഖർജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആന്റ് റിസർച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

രുര കേരളത്തിൽ മൂന്നാം ശക്തിയായി മാറാൻതക്ക തരത്തിൽ ബിജെപിയുടെ അടിത്തറ ഭദ്രമായതായി ദേശീയ ഭാരവാഹി യോഗം വിലയിരുത്തി ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ സ്വീകാര്യത വർദ്ധിച്ചതായും വിലയിരുത്തിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി കുപേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ ഭാരവാഹികളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയ ശക്തിക്ക് ഉപരിയായി എല്ലാവർക്കുമൊപ്പം എല്ലാവരുടേയും വികസനം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടു രാജ്യത്തിന് ആദ്യ പരിഗണന നൽകി പാർട്ടിയെ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കോവിഡ് മഹാമാരി ഫലപ്രദമായി കൈകാര്യം ചെയ്തതിലും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പരിഷ്ക്കരണങ്ങളിലും കാർഷിക പ്രധാനമന്ത്രിയെ അനുമോദിക്കുന്ന പ്രമേയങ്ങൾ ഭാരവാഹി യോഗം പാസാക്കി രംഭ ഇന്ത്യ ചൈന പത്താംവട്ട സൈനിക കമാൻഡർതല ചർച്ചയിൽ സമാധാനപരമായ സേനാ പിൻമാറ്റമുണ്ടാകുമെന്ന് ഇരുരാജ്യങ്ങളും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു പാങ്ങോംഗ് തടാക മേഖലയിൽ നിന്ന് സേനകളെ പിൻവലിക്കാൻ ചർച്ചയിൽ ധാരണയിലെത്തിയിരുന്നു അതിർത്ഥിയിലെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സേനാ പിൻമാറ്റം അടത്തറയാകുമെന്നാണ് വിലയിരുത്തൽ

സംസ്ഥാനത്ത് കൊല്ലം കുണ്ടറ റെയിൽവെ സ്റ്റേഷനുകളിൽ പൂർത്തിയാക്കിയ ഫൂട്ട്ഓവർ ബ്രിഡ്ജുകൾ അദ്ദേഹം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു

രുര സംസ്ഥാനത്തെ നിർമ്മാണം പൂർത്തിയായ മൂന്ന് മത്സ്യബന്ധന തുറമുഖങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിങ്ങ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ മലപ്പുറം ജില്ലയിലെ താനൂർ എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്നിവിടങ്ങളിലാണ് തീരദേശ ജനതയുടെ ജീവിത സുരക്ഷയും ജീവനസ്ഥിരതയും ലക്ഷ്യമിട്ട് തുറമുഖങ്ങൾ നിർമ്മിച്ചത്

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ യാത്രക്ക് സ്വീകരണം നൽകും തുടർന്ന് പയ്യന്നൂർ ഇരിട്ടി പാനൂർ തലശേരി എന്നിവിടങ്ങളിലൂടെ ജാഥ കടന്നുപോകും വൈകീട്ട് കണ്ണൂരിൽ ചേരുന്ന ജില്ലാ സമാപന പരിപാടിയിൽ കേന്ദ്രസഹമന്ത്രി വി

വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടിയിൽ കുമ്മനം രാജശേഖരൻ എ

അബ്ദുള്ളകുട്ടി ശോഭ സുരേന്ദ്രൻ സി

പത്മനാഭൻ തുടങ്ങിയവർ സംസാരിക്കും നാളെ രാവിലെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ അഴിയൂരിൽ വിജയ യാത്രയെ സ്വീകരിക്കും സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് വടകരയിൽ പൊതു സമ്മേളനം ഉണ്ടായിരിക്കും പിന്നീട് നാദാപുരം കുറ്റ്യാടി വഴി യാത്ര വയനാട് ജില്ലയിലേക്ക് പോകും രുര പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്രയുടെ ഔപചാരിക സമാപന സമ്മേളനം നാളെ വൈകീട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉദ്ഘാടനം ചെയ്യും യാത്ര ഇന്നലെ സംസ്ഥാനത്തെ പര്യടനം പൂർത്തിയാക്കിയിരുന്നു രുഭ എൽഡിഎഫിന്റെ വടക്കൻമേഖലാ വികസന മുന്നേറ്റ ജാഥ വൈകീട്ട് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും

രംഭ പുതുച്ചേരിയിൽ മുഖ്യമന്ത്രി വി നാരായണസ്വാമി നിയമസഭയിൽ ഇന്ന് വിശ്വാസ വോട്ട് തേടും വൈകീട്ട് അഞ്ചിന് മുൻപായി സഭയിൽ വിശ്വാസം തെളിയിക്കാൻ ലെഫ്

സഖ്യകക്ഷികളുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി നാരായണ സ്വാമി അന്തിമ തീരുമാനം രാവിലെ നിയമസഭയിൽ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്

രാജ്യത്തെ യൂണിവേഴ്സിറ്റി അസോസിയേഷനുമായി സഹകരിച്ച് ബെങ്കലൂരുവിലായിരിക്കും ഈ വർഷത്തെ ഖേലോ ഇന്ത്യ കായിക മേള നാലായിരത്തോളം കായിക താരങ്ങൾക്ക് ദേശീയ ടീം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഗെയിംസ് വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി ബെങ്കലൂരുവിൽ അറിയിച്ചു രംഭ ഐഎസ്എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സി മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനിലയിൽ പിരിഞ്ഞു

ഇന്ന് വൈകീട്ട് ഹൈദരാബാദ് എടികെ ബഗാനെ നേരിടും രുമ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സെർബിയയുടെ നൊവാക്ക് ജോക്കോവിച്ചിന് ഫൈനലിൽ റഷ്യയുടെ താരത്തെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്

വെർച്വൽ പ്ലാറ്റ്ഫോം കയർ വ്യവസായത്തിന് മുന്നിൽ തുറക്കുന്ന അവസരങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇത്തവണത്തെ കയർ കേരള മേളയെന്നും അദ്ദേഹം പറഞ്ഞു

ദ്ദേ കെഎസ്ആർടിസി ജീവനക്കാർ നാളെ പ്രഖ്യാപിച്ച സമരം ഒഴിവാക്കാൻ ചീഫ് മാനേജിങ്ങ് ഡയറക്ടർ ബിജു പ്രഭാകർ തൊഴിലാളി സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും ജീവനക്കാർ പണിമുടക്കിൽ നിന്ന് പിൻമാറണമെന്ന് ഇന്നലെ മന്ത്രി എ

ശശീന്ദ്രൻ അഭ്യർത്ഥിച്ചിരുന്നു രമേ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നവീകരിച്ച ഓഫീസ് സമുച്ചയവും കോർപ്പറേറ്റ് ഓഫീസും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ

ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും രുദ ആരോഗ്യ സർവ്വകലാശാല തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളജിൽ നിർമ്മിച്ച ഗവേഷണ കേന്ദ്രം മന്ത്രി കെ

രും കൊല്ലം തങ്കശേരിയിൽ ബ്രേക്ക് വാട്ടർ പാർക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കുന്ന ടൂറിസ്റ്റ് ഹബ്ബായി കേരളം മുന്നേറുകയാണെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു രുഭ കോഴിക്കോട് കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രം മന്ത്രി കെ

ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മന്ത്രി ടി

രാമകൃഷ്ണൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു

കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അവിടനല്ലൂരിൽ നിർമ്മിച്ച എൻ

കക്കാട് സാംസ്കാരിക നിലയം പുരുഷൻ കടലുണ്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു രുര കാലിക്കറ്റ് സർവ്വകലാശാലയുടെ കോഴിക്കോട്ടെ ബിഎഡ് സെന്ററിന്റെ പുതിയ കെട്ടിടം മന്ത്രി ഡോ

ജലീൽ നാളെ രാവിലെ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും സർവ്വകലാശാല സെനറ്റ് ഹൌസിലാണ് ഉദ്ഘാടന ചടങ്ങ്

മേളയുടെ മൂന്നാം പതിപ്പിന് നാളെ തലശേരിയിൽ തുടക്കമാകും

രുര ദേശീയ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വയനാട്ടിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ട്രാക്ടർ റാലി സംഘടിപ്പിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് യാത്രക്ക് നേതൃത്വം നൽകുന്നത് തൃക്കൈപ്പറ്റ മുക്കംകുന്നത് നിന്നാരംഭിച്ച് മുട്ടിൽ ടൌണിൽ റാലി സമാപിക്കും